കെ ബാലൻ ്മ് സംസ്ഥാനത്തെ പൊലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുന്നു

ടിസി എംപാനൽ ജീവനക്കാർ പിൻവാതിൽ നിയമനം നേടിയവരാണെന്ന പി

സി വിശദീകരണം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ

ശബരിമല സമരം ആസൂത്രണം ചെയ്തത് സവർണലോബി യാണെന്ന് എസ്

പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രവാസി ഭാരതീയരെ വിദേശത്തെ ഇന്ത്യൻ ബ്രാൻഡ് അംബാ സിഡർമാരായാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു മൌറീഷ്യസ് പോർച്ചുഗൽ ഐയർലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ വംശജർ നേതൃസ്ഥാനങ്ങളിലാണെന്ന് പ്രധാ നമന്ത്രി പറഞ്ഞു

മൂന്ന് ദിവ സത്തെ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഇന്നലെ ആരംഭിച്ചി രുന്നു മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്താണ് ഉദ്ഘാ ടന ചടങ്ങിലെ മുഖ്യാതിഥി നവഭാരത നിർമ്മാണത്തിൽ പ്രവാസി കളുടെ പങ്ക് എന്ന ആശയത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ പരിപാടികൾ നാളെ സമാപന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും

ഇന്നലെ യുവ പ്രവാസി ഭാരതീയ ദിവസ് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് ഉദ്ഘാടനം ചെയ്തിരുന്നു പ്രകടനപത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദേശീയപാത വികസനം നിശ്ചയി ച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും തീരദേശ മലയോര പാ തകളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നുണ്ട് ഇതിന്റെ ഫണ്ട് പൂർണമായും സംസ്ഥാന ഗവൺമെന്റാണ് വഹി ക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്ത മാക്കി കണ്ണൂർ ധർമടത്ത് എൽ

എഫ് ബഹുജന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രളയാനന്തര പുനർ നിർമാണത്തിന് ഉൌന്നൽ നൽകുന്നതാകും ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് മന്ത്രി ഡോ തോമസ് ഐസക്ക് പറഞ്ഞു ഇതിനാവശ്യ മായ വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വൃക്തമാക്കി

ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടം കണക്കിലെടുത്താകും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയെന്ന് അദ്ദേഹം പറഞ്ഞു

ഒന്നര കോടി രൂപയുടെ വിറ്റുവരവുള്ള വ്യാപാരികളെ പ്രളയ സെസിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും കെഎസ്ആർടിസിക്ക് ആയിരം കോടി രൂപ നീക്കിവെക്കുമെന്നും മാന്ദ്യകാലത്ത് ആയിരം കോടി എന്നത് ചെറിയ തുകയല്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി സംസ്ഥാനഗവൺമെന്റിന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീ സിൽ മൂന്ന് സ്ട്രീമുകളിലും സംവരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ബാലൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിനാവശ്യമായ ചട്ടഭേദഗതി കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യ മന്ത്രി ഇക്കാരൃത്തിൽ ഉറപ്പ് നൽകിയതായും എ കെ ബാലൻ പറ ഞ്ഞു ജാതി സംവരണത്തിന് പുറമെ മുന്നാക്കക്കാരിലെ പാവപ്പെ ട്ട വർക്കും സംവരണത്തിന് ആനു കൂലൃം നൽകും മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം വേണമെന്നത് സിപിഐഎമ്മിന്റെ നയമാണ് ഇക്കാര്യം പ്രകടനപത്രികയിൽ തന്നെ വ്യക്തമാക്കി യിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക സംവരണം എത്ര ശതമാനം വരെ ആകാമെന്നത് സംബന്ധിച്ച് കേന്ദ്രം വ്യക്തത വരുത്തിയിട്ടില്ല

മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് മാത്രമേ സംവരണ ആനുകൂല്യം ലഭിക്കുകയുള്ളൂവെന്നും മന്ത്രി ബാലൻ പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ് റ്റേഷനുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുന്നു ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലാണ് റെയ്ഡ്

പോലീസുകാർ അഭിഭാഷകർക്ക് കേസ് പിടിച്ചുകൊടുക്കുന്നു മണൽ കാറി മാഫിയകളുമായി വഴിവിട്ട ബന്ധം പുലർത്തുന്നു പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ കോഴ വാങ്ങി ഒത്തുതീർപ്പാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്റലിജൻസ് കണ്ടെത്തിയത് പരിശോധനയിൽ ഇതുവരെ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല

സി യിലെ എംപാനൽ ജീവനക്കാർ പിൻ വാതിൽ വഴി നിയമനം നേടിയവരാണെന്ന തരത്തിൽ ഹൈക്കോ ടതിയിൽ പി

സി വിശദീകരണം നൽകിയത് ദൌർഭാഗ്യകര മാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അത്തരമൊരു പരാ മർശം പി

ഇപ്പോൾ കോടതിയെ സമീപിച്ച എംപാനൽ ജീവനക്കാർ എം പ്പോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ചവരാണ്

ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി കോഴി ക്കോട്ട് വ്യക്തമാക്കി കെഎസ് ആർടിസിയിൽ നിന്നും പിരിച്ചു വിട്ട എം പാനൽ കണ്ടക്ടർമാർ സെക്രട്ടറിയേറ്റിനു മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം രണ്ടാംദിവസവും തുടരുന്നു ഇന്നലെ ശയന പ്രദക്ഷിണത്തോടെയാണ് സമരം ആരംഭിച്ചത് ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം വെള്ളിയാഴ്ച്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതോടെ സമരവേദി അങ്ങോട്ട് മാറ്റുമെന്ന് എംപാനൽ കൂട്ടായ്മ അറിയിച്ചു കണക്കുകളിൽ കൃത്യത വേണമെന്നും കാര്യങ്ങൾ സുതാര്യ മായി നടക്കണമെന്നും കെഎസ്ആർടിസിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എംപാനൽ കണ്ടക്ടർമാർ നൽകിയ ഹർജി പരിഗ ണിക്കവെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം എംപാനലുകാ രെ പിരിച്ചുവിട്ടതിന് ശേഷവും കെഎസ്ആർടിസിയുടെ പ്രർത്ത നം സുഗമമായി നടക്കുന്നില്ലേയെന്നും കോടതി ചോദിച്ചു അതേ സമയം കെഎസ്ആർടിസിയിൽ ഇനി വരുന്ന ഒഴിവുകൾ പിഎ സ്സിയെ അറിയിക്കുമെന്ന് കെഎസ്ആർടിസി കോടതിയെ അറി യിച്ചു

എഫിൽ ലോക്സഭാ സീറ്റുവിഭജന ചർച്ചകൾ തുടങ്ങി യിട്ടില്ലെന്ന് കൺവീനർ ബെന്നി ബെഹനാൻ അറിയിച്ചു

ഘടക കക്ഷികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് എന്നും മുന്നണി പരിഗണന നൽകിയിട്ടുണ്ടെന്നും ബെഹനാൻ തിരുവന ന്തപുരത്ത് വ്യക്തമാക്കി പ്രധാനമന്തി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിക്കും

ബാലകല്യാൺ വിഭാഗത്തിൽ രണ്ട് വ്യക്തികൾക്കും മൂന്ന് സ്ഥാപനങ്ങൾക്കുമാണ് പുരസ്കാരം ബാലശക്തി പുരസ്കാരം ലഭിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയും പതിനായിരം രൂപയുടെ പുസ്തക വൌച്ചറുകളും സർട്ടി ഫിക്കറ്റും ശിൽപ്പവും നൽകും ബാലകല്യാൺ വിഭാഗത്തിൽ വ്യക്തികൾക്ക് ഒരു ലക്ഷം രൂപയും മെഡലും പ്രശസ്തി പത്രവും ലഭിക്കും സ്ഥാപനങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയാണ് അവാർഡ് തീരദേശ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിനായി നടത്തുന്ന പ്ര ത്യേക പരിശോധനയായ സീ വിജിൽ ഇന്നും നാളെയും നടക്കും

തീരരക്ഷാസേന തീരദേശ പോലീസ് മത്സ്യത്തൊഴിലാളികൾ തു ടങ്ങിയവരെ ഏകോപിപ്പിച്ചാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾക്ക് എതിരെ യുഡിഎഫ് നാളെ സെക്രട്ടേറിയറ്റിലേക്കും വിവിധ കല ക്ടറ്റേുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കും

കോഴിക്കോട് കലക്ടറേറ്റ് വളയൽ രാവിലെ പത്തിന് കെ പി സിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഉപവാസം കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് എം

എ ഉദ്ഘാടനം ചെയ്യും ശബരിമല സമരം ആസൂത്രണം ചെയ്തത് സവർണ്ണ ലോബിയാണെന്ന് എസ്

പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന അവസാനഘട്ടമെന്ന നിലയിലാണ് അയ്യ പ്പസംഗമം അവർ ആസൂത്രണം ചെയ്തതെന്നും വെള്ളാപ്പള്ളി കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു രാജാവും കുറച്ച് ചങ്ങനാശ്ശേരിക്കാരും പിന്നെ തന്ത്രിയും ചേർന്നാണ് സമരം തുടങ്ങിവെച്ചത് മറ്റ് ഹൈന്ദവ സമുദായങ്ങളു മായി കൂടിയാലോചിക്കാനോ അഭിപ്രായം തേടാനോ അവർ തയ്യാ റായില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി

പി യും മുന്നാക്ക ഹൈന്ദവ സംഘടനകളും സമരം മുന്നോട്ട് കൊണ്ടു പോകുകയാണ് സവർണ്ണ കൂട്ടായ്മയിൽ ചേരാൻ എസ്

പി യ്ക്ക് ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദോഷം സംഭവിക്കുന്നത് യു

എഫിനായിരിക്കുമെന്നും എൽ

എഫിന് ഒന്നും സംഭവി ക്കാൻ പോകുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെ ക്ഷേത്ര ഭരണസമിതികൾ നിയമനങ്ങളിൽ മുന്നാക്ക പ്രീണനം നടത്തുകയാണെന്ന് വെള്ളാ പ്പള്ളി നടേശൻ ആരോപിച്ചു

പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കോ പിന്നാക്കക്കാർക്കോ അർഹമായ വിഹിതം നിയമനങ്ങളിൽ ലഭിച്ചിട്ടില്ലെന്ന് എസ്

പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞു

സി യുടെ ഈ വർഷത്തെ ഏകദിന ടെസ്റ്റ് ടീമുകൾ പ്രഖ്യാപിച്ചു വിരാട് കോലിയാണ് രണ്ട് ടീമുകളുടെയും ക്യാപ്റ്റൻ

രോഹിത് ഷർമയും കുൽദീപ് യാദവും ഏ കദിന ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമാണ് ഋഷഭ് പന്ത്

ശനിയാഴ്ചയാണ് രണ്ടാം ഏകദിനം

മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കസ്റ്റഡിയിലായവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കടത്തിന് ഉപയോഗിച്ച ബോട്ടുവിറ്റ അനിൽകുമാർ ന്യൂഡൽഹി അംബേദ്കർ കോളനിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രഭു ദണ്ഡ പാണി എന്നിവരെ വിവിധ അന്വേഷണ സംഘങ്ങൾ കൊച്ചിയിൽ ചോദ്യം ചെയ്തുവരികയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗവൺമെന്റ് സമർപ്പിച്ച സത്യ വാങ്മൂലത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യ പ്പെട്ട് നടൻ ദിലീപ് സൂപ്രീംകോടതിയിൽ അപേക്ഷ നൽകി